രാജ്യത്തെ കോവിഡ് വ്യാപനവും പ്രതിരോധവും കൃാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ അവലോകനം ചെയ്തു

കോവിഡ് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനായി കേന്ദ്രം സ്വീകരിച്ച നടപടികൾ കാബിനറ്റ് സെക്രട്ടറി വിശദീകരിച്ചു ആശുപത്രികൾക്ക് സമയബന്ധിതമായി ഓക്സിജനും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും നൽകുന്നതിൽ ഒരു തടസ്സമുണ്ടാകില്ലെന്നും ശ്രീ രാജീവ് ഗൌബ ഉറപ്പ് നൽകി മെഡിക്കൽ ഓക്സിജന്റെ ഉൽപാദനത്തിനും വിതരണത്തിനുമായി കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ പ്രധാനമന്ത്രി സജീവ ഇടപെടൽ നടത്തി വരികയാണ് രണ്ടാം ഡോസ് വാക്സിനേഷന് അർഹരായവർക്ക് മുൻഗണന നൽകണം അതേസമയം വാക്സിൻ പാഴാക്കുന്നത് പരമാവധി ഒഴിവാക്കണ്ണമെന്നും് അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പുതിയ കോവിഡ് രോഗികളുടെയും മരണങ്ങളുടെയും എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി

പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഒരു ലക്ഷത്തിലധികം കോവിഡ് രോഗികളുള്ളത്

കർണാടക കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ ഒഡീഷ പഞ്ചാബ് അസം ജമ്മു കശ്മീർ ഗോവ ഹിമാചൽ പ്രദേശ് പുതുച്ചേരി മണിപ്പൂർ മേഘാലയ ത്രിപുര നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ രോഗനിരക്ക് ഉയരുന്ന പ്രവണതയാണ് കാണുന്നത് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് തെലങ്കാന ചണ്ഡിഗഢ് ലഡാക്ക് ദാമൻ ഡിയു ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ രോഗികളുടെ എണ്ണം കുറയുകയാണ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഡൽഹി രാജസ്ഥാൻ ഹരിയാന ഛത്തീസ്ഗഢ് ബീഹാർ ഗുജറാത്ത് എന്നിവിടങ്ങളിലും കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് രാജ്യത്ത് രോഗപരിശോധനയും മികച്ച രീതിയിൽ നടക്കുന്നുണ്ട്

കഴിഞ്ഞ രണ്ട് ദിവസമായി ബീഹാറിലും ഉത്തർപ്രദേശിലും ഗംഗ യമുന നദികളിൽ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നതായി വിവിധ മാധൃമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇക്കാര്യം നിർദേശിച്ച് ക്ലീൻ ഗംഗ ദേശീയ മിഷൻ ഫോർ ഡയറക്ടർ ജനറൽ രാജീവ് രഞ്ജൻ മിശ്ര ജില്ലാ മജിസ്ട്രേറ്റുമാർ അധ്യക്ഷനായ ജില്ലാ ഗംഗാ സമിതികൾക്ക് കത്തെഴുതി

ഒരു ആഗോള വെല്ലുവിളി ന്റേരിട്ടാൻ ഒരു ആഗോള പ്രതികരണത്തിലൂടെ സാക്ഷിക്കു്മെന്നും ശ്രീ

ഇന്ത്യയിൽ നിർമിക്കാത്ത ടോസിലി സുമാബ് മരുന്ന് സ്വിറ്റ്സർലന്റിൽ നിന്നാണ് ഇന്നലെ എത്തിച്ചത് കോവിഡ് വ്യാപനവും മരുന്നിന്റെ ആവശ്യവും ഗണ്യമായി ഉയർന്ന സാഹചരൃത്തിലാണ് നടപടി

ഇത്തരം ജീവനക്കാരുടെ വിവരങ്ങൾ ഓഫീസ് മേധാവികൾ ജില്ലാ കളക്ടർക്ക് അടിയന്തിരമായി നൽകണം ആരോഗ്യസംബന്ധമായ കാരണങ്ങളാൽ സർക്കാർ ഒഴിവാക്കിയവരെ അനുബന്ധന സേവനങ്ങൾക്ക് നിയോഗിക്കില്ല

ഇന്നലെ കീരിത്തോട്ടിലുള്ള് ഭർത്താവുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടെ ഷെല്ലുകൾ താമസ സ്ഥലത്ത് പതിക്കുകയായിരുന്നു

ഗാസയിലെ മറ്റു മേഖലകളിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ നൂറ്റൻപതിലേറെപ്പർക്കു പരുക്കേറ്റു

നിലവിലുള്ള കോവിഡ് സ്ഥിതി കണക്കിലെടുത്താണ് തീരുമാനം

നരേന്ദ്രമോദിയെ യു കെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രത്യേക അതിഥിയായി ക്ഷണിച്ചിരുന്നു

സ്വിറ്റ്സർലൻഡിലെ പ്രതിനിധി സംഘത്തെ ഫിനാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി ഡാനിയേല സ്റ്റോഫൽ നേതൃത്വം നൽകി

തിരുവനന്തപുരത്ത് വൈകിട്ട് ആരംഭിച്ച ഇടിയോടു കൂടിയ മഴ ഇന്ന് പുലർച്ചെയും തുടർന്നു താഴ്ന്ന സ്ഥലങ്ങൾ പലതും വെള്ളത്തിൽ മുങ്ങി

തെക്കു കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചരൃത്തിൽ നാളെ മുതൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചു

ഇറച്ചിക്കടകളിലെ ആൾക്കൂട്ടം ഒഴിവാക്കാനായി പരമാവധി ഡ്യോർ ഡെലിവറി പ്രോത്സാഹിപ്പിച്ച് അതിനാവശ്യമായ ഒരുക്കങ്ങൾ പ്രചയ്യണം കടയ്ക്ക് മുന്നിൽ സാമൂഹിക അകലം ഉൾപ്പെട്ട് എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിക്കണം

ഈ വിഷയം സംബന്ധിച്ച് അച്ചടി ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും യു

തു്ടർന്ന് കോവിഡ് വ്യാപന സാഹചര്യം നേരിട്ട ഘട്ടത്തിൽ കഴിഞ്ഞ വർഷമാണ് സർവ്വീസിൽ തിരിച്ചെത്തിയത്